കഴിഞ്ഞ ആറു വർഷം അഴിമതി രഹിതവും സുതാര്യവുമായ ഭരണം കാഴ്ചവയ്ക്കാൻ കേന്ദ്ര ഗ്വൺമെന്റിന് കഴിഞ്ഞതായി കേന്ദ്ര ആഭ്യന്തർമ്പ്തി അമിത് ഷാ

ലക്ഷദ്വീപിന്റെ വിക്ടസ്നത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് രാഷ്ട്രപ്തി രാംനാഥ് കോവിന്ദ്

വിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് ഡൽഹി പൊലീസ് വിദ്യാർത്ഥികളോട് ക്യാമ്പസിലേക്ക് മടങ്ങി വരണമെന്ന് വൈസ് ചാൻസലർ

പ്രത്യേക ആവശ്യപ്രകാരം ഇറക്കുമതി ചെയ്ത ഉള്ളി ഏറ്റെടുക്കണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രം

ഉത്തരവ് പുറപ്പെടുവിച്ച അഡീഷണൽ സെഷൻസ് ജഡ്ജ് സതീഷ് കുമാർ അറോറ പ്രതികൾക്കെതിരെ മരണ വാറന്റ് പുറപ്പെടുവിച്ചു മുകേഷ് വിനയ് ശർമ്മ അക്ഷയ് സിംഗ് പവൻ ഗുപ്ത എന്നിവ്രെയാണ് തൂക്കിലേറ്റുക

ജെ

ഇതിവര്ർ ഒരു അഴിമതി ആരോപണവും ഗവൺമെന്റിനെതി ഉയർന്നീട്ടില്ല് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതവും പ്രവർത്തനവും ആധാരമാക്കിയ കർമ്മയോദ്ധ ഗ്രന്ഥ് എന്ന പുസ്തകം ന്യൂഡിൽഹിയിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ് അദ്ദേഹം കൃഷി ആരോഗ്യ സുരക്ഷ വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിൽ പരിഷ്കരണം കൊണ്ടുവരാൻ എൻ

എ

പ്രീണന കുടുംബ ജാതി രാഷ്ട്രീയങ്ങൾക്ക് അറുതി വരുത്തി പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചതായും ശ്രീ

എസ് ബന്ധം അനുദിനം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്പര താത്പര്യമുളള എല്ലാ മേഖലകളിലും സഹകരണം വർധിപ്പിക്കുന്നതിന് തുടർന്നും ഒത്തൊരുമിച്ചു പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി ശ്രീ മോദി യു

പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന് പുതുവത്സരാംസകൾ നേർന്നു കൊണ്ടു പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പങ്കാളിത്തം കൂടുതൽ ദൃഢമായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തിലൂടെയുണ്ടായ നേട്ടങ്ങളിൽ പ്രസിഡന്റ് ട്രംപ് സംതൃപ്തി രേഖപ്പെടുത്തി

രാജ്യത്തെ വ്യാപാരികളുടെ കൂട്ടായ്മായ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യൂ ട്രേഡേഴ്സ് കൺവെൻഷൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേന്ദ്ര റവന്യൂ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടപടി ക്രമങ്ങൾ ലളിതമാക്കുന്നതിന് കേന്ദ്ര സംസ്യാന ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗവും ഇന്ന് ചേർന്നു പരിഷ്കരണത്തിന് വ്യാപാരികളിൽ നിന്നും നിർദ്ദേശങ്ങൾ തേടിയതായി ശ്രീമതി സീതാരാമൻ പറഞ്ഞു

പ്രശ്നങ്ങൾ പരിശോധിച്ച് പരിഹരിക്കുന്നതായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാവസായിക സംഘടനകൾ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതായി മന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി അനിൽ കുമാർ വോയ്സ് യോഗയുടെ സന്ദേശം ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെ അംഗീകരിക്കുന്നതിനായി കഴിഞ്ഞ ജൂണിലാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്

ഇന്ത്യയുടെ ലോകത്ത് സിത്മാണ് ആരോഗ്യപരിപാലനത്തിന് മഹത്തായ ഉപാധിയാണ് ഇതെന്നും പുരസ്കാരങ്ങൾ സമ്മാനിച്ചു കൊണ്ട് ശ്രീ പ്രകാശ് ജാവദേക്കർ പറഞ്ഞു സമൂഹത്തിന് നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കുക എന്നത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ടോൾ പ്പാസകളിലുൾപ്പെടെ തടസ്സം കൂടാതെ ഗതാഗതം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം ടോൾ പിരിവിന് ഓൺലൈൻ ഫാസ്റ്റാഗ് സംവിധാനം നിലവിൽ വന്നതോടെ ടോൾ പ്താസകളിൽ നിർമ്മിച്ചിട്ടുള്ള ഹമ്പുകളും മറ്റ് വേഗത നിയന്ത്രിത സംവിധാനങ്ങളും മാറ്റി തുടങ്ങിയിട്ടുണ്ട്

പ്രകൃതി ഭംഗിയാൽ അനുഗൃഹീതമായ ദ്വീപ് സമൂഹത്തിൽ വികസനത്തിന് അനന്തസാധ്യതകളാണ് ഉള്ളതെന്ന് ആസ്ഥാനമായ കവരത്തിയിൽ ദ്വീപ് നിവാസികളെ അഭിസംബോധന ചെയ്യവെ അദ്ദേഹം പറഞ്ഞു കവരത്തിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് രാഷ്ട്രപതി തറക്കല്ലിട്ടു പിന്നീട് ബംഗാരം ദ്വീപിലേക്ക് പോയ രാഷ്ട്രപതി ഇന്നും നാളെയും അവിടെ തങ്ങും

യു ക്യാമ്പസ് പൂർണമായും സുരക്ഷിതമാണെന്നും അദ്ദേഹം അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

വിൽ ഉണ്ടായ സംഭവം ദൌർഭാഗ്യകരമായിരുന്നുവെന്നും പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് താനെന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പുതിയ സംഭവങ്ങളൊന്നും ക്യാമ്പസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പൊലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ദേവേന്ദർ ആര്യ വ്യക്തമാക്കി

സംഭവം ക്രൈംബ്രാഞ്ച് പരിശോധിച്ച് വരുന്നതായും ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു

ഭക്ഷ്യമന്ത്രി രാംവിലാസ് പാസ്വാനാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്

ചില സംസ്ഥാനങ്ങൾ ആവശ്യം പിന്നീട് പ്പിൻവലിച്ചെങ്കിലും ഉള്ളി ഏറ്റെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു്

ദക്ഷിണ കശ്മീരിലെ അവന്തിപ്പോറ മേഖലയിലും പുൽവാമ ജില്ലയിലുമുണ്ടായ ഏറ്റുമുട്ടലുകളിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത് അവന്തിപ്പോറ മേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ മരിച്ചത് അനന്ത് നാഗ് ജില്ലയിൽ ്നിന്നുള്ള ഷാഹിദ് എന്നയാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്

അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇയാൾ ചോർത്തി നൽകിയത് കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ഉന്നത പൊലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു

കിഷ്ത്വാർ ജില്ലയിൽ ഗ്രാമീണ പ്രതിരോയ സമിതി അംഗമായ ദേവിദാസിനെയാണ് അറസ്റ്റു ചെയ്തത് ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരന് ആയുധം വിറ്റതായാണ് ആരോപണം

വിദേശ സഞ്ചാരികളടക്കം ഒട്ടേറെ പേരെ ആകർഷിക്കുന്നതാണ് ഗുജറാത്തിലെ പട്ടം പറത്തൽ ഉത്സവം

എം എസ് പണിമുടക്കിൽ നിന്ന് വിട്ടു നിൽക്കും